സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ രോഗികൾ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ

നടപടികൾ ആവശ്യമാര്ണ്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റ് സം്സ്ഥാനത്തെ നിയന്ത്രണങ്ങൾ ക്ർശനമാക്കുമെന്നും മുഖൃമന്ത്രി

മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ

വാക്സിനേഷന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു

ടി പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചു

ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ എത്രയും വേഗം സംഭരിക്കണമെന്നും രോഗവ്യാപനംകൂടുതലുള്ള സംസ്ഥാനങ്ങൾ ക്ക് നൽകണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു

ഇതിലൂടെ രാജ്യത്തെ ഓക് സിജൻ വിതരണം വർധിപ്പിക്കാൻ സാധിക്കുമെന്നും അതുവഴി ആശുപത്രികളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിലെ നേരിടാനാകുമെന്നും പ്രധാനമന്ത്രി പ്രത്യാൾ പ്രകടിപ്പിച്ചു

രോഗികൾക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കോവിഡ് പ്രതിരോധത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗവ്യാപനഘട്ടം നേരിടുന്നതിന് ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകരൃങ്ങൾ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ മുൻകൂട്ടി ഒരുക്കേണ്ടതുണ്ട് കോവിഡ് പ്രതിരോധപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് മിനിമം വേതനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

വിശദാംശങ്ങളുമായി കാസർകോഡ് നിന്നും ആകാശവാണി ജില്ല പ്രതിനിധി പി

ടി

സി ആർ പരിശോധന നെഗറ്റീവ് ആയതിന്റെയോ ്രണ്ടുഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെയോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തെ സ്ഥാനാർഥികളേയോ ഏജന്റുമാരേയോ വോട്ടെണ്ണൽ ഹാളിൽ കയറാൻ അനുവദിക്കില്ല കൌണ്ടിംഗ് ഏജന്റുമാരുടെ പട്ടിക് സ്ഥാനാർഥികൾ വോട്ടെണ്ണൽ ദിവസത്തിന് മൂന്നുദിവസം മുമ്പ് വരണാധികാരികൾക്ക് നൽകണം

തപാൽ ബാലറ്റുകൾ എണ്ണാൻ കൂടുതൽ എ

ആവശ്യമെങ്കിൽ തപാൽ ബാലറ്റുകൾ പ്രത്യേക ഹാളിൽ എണ്ണണം കോവിഡ് സംബന്ധ മാലിന്യങ്ങളായ മാസ്ക് ഫേസ് ഷീൽഡ് പി

ഇ കിറ്റ് ഗ്ലൌസ് എന്നിവ ഉപയോഗശേഷം സംസ്കരിക്കാനും കൃത്യമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാർഗ്ഗനിർദ്ദേശത്തിൽ പറഞ്ഞു

ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്

പലയിടത്തും കോവിൻ ആപ്പിലെ സാങ്കേതിക തടസുംമൂലം രജിസ്ട്രേഷൻ നടക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് അതേ സമയം കോവിൻ പോർട്ടലിലെ തകരാർ പരിഹരിച്ചെന്നും വാക്സിനേഷൻ രജിസ്ട്രേഷൻ തുടരാമെന്നും പ്രക്നേന്ദ് ആരോഗ്യമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്

അതിനിടെ കോവിഷീൽഡ് വാക്സിന്റെവില കുറച്ചതായി സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം

ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

സി ആർ പരിശോധനാ ഫലം വൈകുന്നത് രോഗ വൃാപനം കൂട്ടുന്നതായും അദ്ദേഹം പറഞ്ഞു

വാക്സിനേഷൻ കൃാമ്പുകൾ രോഗവൃാപനത്തിന് കാരണമാകുന്നുവെന്ന കേന്ദ്രസഹമന്ത്രി വി മുരളീധരന്റെ ആരോപണത്തോട് മുഖൃമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും കെ

ഇഡികേസ് സ്വർണ്ണകടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സന്ദീപ് സരിത്ത് എന്നിവർക്ക് ഉപാധികളോടെ ജാമ്യാ അനുവദിച്ചു